സ്വാതന്ത്ര്യ സമര ചരിത്രം വിശദമാക്കുന്നു നാല് മ്യൂസിയങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാട്ടതും ചെയ്തു

അസം മേഘാലയ മിസോറം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭേദഗതി അസം മേഘാലയ മിസോറം ത്രിപുര കാർബി ആങ്ലോങ് ദിമ ഹസാവെ എന്നിവിടങ്ങളിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വരും ഇന്റ് ഗ്ലിന്കാര്യ കമ്മീഷനുകളാണ് പട്ടിക ആറിലെ പ്രദേശങ്ങളിലെ പ്പിത്ത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ഗ്രാമ പഞ്ചായത്ത് നഗരസഭാ ്സമിതികൾക്കുമുള്ള വിഭവ കൈമാറ്റത്തിന് ശുപാർശ ക്ഷ്യ്യുന്നത് ഇവിടെങ്ങളിലെ ആദിവാസി സമൂഹ മേഖ്ച്കളുടെ വികസനത്തിനായി കൂടുതൽ പണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും അസം മിസോറം ത്രിപുര എന്നിവിടങ്ങളിലെ തദ്ദേശ ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും നടത്തുക ഗ്രാമ നഗരസഭാ ഭരണ സമിതികളിൽ മൂന്നിലൊന്ന് ശതമാനം വനിതാ സംവരണമാകും എല്ലാ തദ്ദെശ സമിതികളിലും കുറഞ്ഞത് രണ്ട് വനിതകളെങ്കിലും നോമിനേറ്റഡ് അംഗങ്ങളാകും

കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദാണ് ഇക്കാരൃം അറിയിച്ചത്

ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ കുവൈറ്റും ഇന്തൃയും ധാരണാപത്രം ഒപ്പിട്ടതായും മന്ത്രി അറിയിച്ചു ഗാർഹിക ജോലിക്കായി പോകുന്നവരുടെ വേതനവും സുരക്ഷയും ഗവൺമെന്റ് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് വർഷത്തേയ്ക്കാണ് ഈ കരാറിന്റെ കാലാവധിയെങ്കിലും പുതുക്കാനുള്ളി നീബന്ധനയും ചേർത്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോള് ഇന്ത്യക്കാരാണ് ഗാർഹിക ജോലിക്കായി കുവൈറ്റിൽ ഉള്ളത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയാണ് ഇന്ത്യയുടേതെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയെ ലോകരാജ്യങ്ങളുമായി കണ്ണിച്ചേർക്കുന്നത് പ്രവാസികളാണെന്നും അദ്ദേഹം പറഞ്ഞു

വിദേശ ഇന്ത്യൻ തൊഴിലാളികൾക്കുള്ള സഹായ പുസ്തകത്തിന്റെ പ്രകാശനവും ഇന്ന് വാരാണസിൽ നടന്നു ജനറൽ വി

സിങിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്ലീനറി സെക്ഷനിൽ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിനു ശേഷം പ്രതിനിധികൾ നാളെ പ്രയാഗ്രാജിലെ കുംഭ മേളയിൽ പൂങ്കെടുക്കും

ന്യൂഡൽഹിയിൽ നേതാജിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

മുതിർന്ന ബി

പി നേതാവ് എൽ

അദ്ധാനി കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് പാർലമെന്ററി കാര്യസഹമന്ത്രി വിജയ് ഗോയൽ ആരോഗ്യമന്ത്രി ജെ

നദ്ദ എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നേതാജി സുഭാഷ്ചന്ദ്രബോസിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

സമൃദ്ധമായ ഇന്ത്യാ ചരിത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ നാല് മ്യൂസിയവും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ തനിക്ക് വളരെയധികം അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യസമര സേനാനികളുടെ ധീരതയ്ക്കുള്ള ആദരവായി ഈ മ്യൂസിയം സമുച്ചയം ക്രാന്തിമന്ദിർ എന്ന് അറിയപ്പെടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഘാസിയാബാദിലെ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ എട്ടാം ബറ്റാലിയനാണ് ഈ വർഷത്തെ അവാർഡിന് അർഹരായത്

കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് നൽകിയിരിക്കുന്നത്

പ്രകോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി മലയാളിയായ കെ

മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദിന്റെ ഫ്രി്യാനയ്ക്കുള്ള ജനറൽ സെക്രട്ടറിയായും നിയിമ്ന്റ് നൽകിയിട്ടുണ്ട്

ജെ

പ്രവർത്തകരുടെ താൽപര്യമനുസരിച്ചാണ് ബി ജെ

ജനാധിപത്യമൂല്യങ്ങൾ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഏകപാർട്ടി ബി ജെ പിയാണെന്നും അദ്ദേഹം പറഞ്ഞു ബാരാമതി ഗദ്ചിരോലി ഹിങ്കോലി നാൻദദ് നാൻദർബാർ എന്നിവിടങ്ങളിലെ ബൂത്ത് പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മുന്നാക്കവിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണമനുവദിച്ച ഗവൺമെന്റ് തീരുമാനത്തെ കോൺഗ്രസ് കോടതിയിലൂടെ എതിർക്കുകയാണെന്നും ശ്രീ

ജെ പി നേതാവ് സാംബിത് പത്ര

ജെ പിയും ക്ടോൺഗ്രസും വ്യത്യസ്ത അടിത്തറകളിൽ നിന്നും രൂപം കൊണ്ട്ട് പാർട്ടികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ജെ പ്പി ഒരു് വലിയ കുടുംബമായിരിക്കുമ്പോൾ ക്ടോൺഗ്രസ് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാണെന്നുകൃശ്രീ

അസം ഡിജിപിയുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർമാരുമായും വീഡിയോ കോൺഫറൻസിംഗ് നടത്തി ക്രമസമാധാന നില ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിശകലനം ചെയ്തു

എസുമായി ബന്ധമുണ്ടെന്നു സംശയിക്കുന്ന ഒൻപത് പേരടങ്ങുന്ന സംഘത്തെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്കാഡ് അറസ്റ്റു ചെയ്തു

ഇവരിൽ നാലുപേരെ ഔറംഗാബാദിൽ നിന്നും മൂന്നുപേരെ മുംബൈയിലെ താനെയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്

കാർട്ടർ ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോളിന പ്ലിസ്കോവയോടാണ് സെറീന പരാജയപ്പെട്ടത് സെമിയിൽ യു എസ് ഓപ്പൺ ജേതാവായ ജപ്പാൻ താരം നവോമി ഒസാഖയാണ് പ്തിസ്കോവയുടെ എതിരാളി പുരുഷൻമാരുടെ സിംഗിൾസിൽ ദ്യോക്കോവിച്ച് സെമിയിൽ കടന്നു എതിരാളിയായ ജപ്പാൻ താരം നിഷിക്കോരി പരിക്കേറ്റ് പുറത്തായതോടെയാണ് ദ്യോക്കോവിച്ചിന് സെമിബർത്ത് ഒരുങ്ങിയത് സെമിയിൽ ലൂക്കാസ് പൌളിയ്കാണ് ദ്യോക്കോവിച്ചിന്റെ എതിരാളി രണ്ടാം സെമിയിൽ റാഫേൽ ന്യൂട്ടാൽ ഗ്രീക്കിന്റെ സ്റ്റെഫാനോസിനെ നേരിടും